അനുകൂല സാഹചര്യം ഉണ്ട്ടാൽ മാത്രമേ ഇന്ത്യ പാകിസ്ഥാനുമായി ഏത് തരത്തിലുമുള്ള ചർച്ചിയ്ക്കും തയ്യാറാകൂ എന്ന് കേന്ദ്ര ആഭൃന്തര സഹമന്ത്രി വി

ബെലാറസിലെ മിൻസ്ക്കിൽ നടക്കുന്ന മെഡ്വേദ് അന്താരാഷ്ട്ര ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സാക്ഷി മാലിക്കിന് വെളളി മെഡൽ

ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു തന്റെ ജന്മദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിലെ നരുറാർ ഗ്രാമത്തിലെ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളുമായി അദ്ദേഹം ആശയവിനിമയം നടത്തുകയും ഗ്രന്ഥശാല ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യും തുടർന്ന് കാശി വിദ്യാപീഡിലെ വിദ്യാർത്ഥികളുമായും അദ്ദേഹം കൂടിക്ക്യാഴ്ച നടത്തും

പ്രധാനമന്ത്രിക്ക് ദീർഘായുസ് നേർന്ന രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് നിരവധി വർഷങ്ങൾ ജനങ്ങൾക്കു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചു

രാജ്യം ഉജ്ജ്വലമായ വളർച്ച കൈവരിച്ചതായും ലോകത്തെ ആറാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയതായും കേന്ദ്രമന്ത്രി രാജ്നാഥ്സിംഗ് പറഞ്ഞു

രാജ്യത്തിന്റെ യശസ്സ് ഉയർത്താനുള്ള അതുല്യ എസ്സ്പനങ്ങൾക്ക് നിരവധി വർഷങ്ങൾ ചുക്കാൻ പിടിക്കാൻ പ്രിയ്ക്ക് കഴിയട്ടെയെന്ന് കേന്ദ്രമന്ത്രി അരുൺജെയ്റ്റ്ലീം ആശംസിച്ചു ഫലപ്രദമായ നേതൃത്വത്തിലൂടെ ഇന്ത്യയെ വികസനപാതയിൽ എത്തിക്കാൻ ശ്രീ മോദിക്ക് സാധിച്ചതായി കേന്ദ്രമന്ത്രി രാജ്യവർദ്ധൻ റാത്തോഡും പറഞ്ഞു കോൺഗ്രസ് അദ്ധ്യക്ഷൻ രാഹുൽഗാന്ധിയും പ്രധാനമന്ത്രിക്ക് ആയുരാരോഗ്യ സൌഖ്യങ്ങൾ നേർന്നു

കഴിഞ്ഞ നാലുവർഷം കൊണ്ട് ശുചീകരണ മേഖലയിൽ രാജ്യം ഏറെ പുരോഗതി പ്രാപിച്ചതായി ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു ശുചിത്വമേഖലയിൽ രാജ്യത്ത് വൻ മുന്നേറ്റമുണ്ടായതായും രാജ്യത്തെ ജനങ്ങളുടെ പങ്കാളിത്തം മൂലമാണ് സച്ച് ഭാരത് അഭിയാൻ പദ്ധതി ഇത്രത്തോളം വിജയിച്ചുതെന്നും കേന്ദ്രമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വി ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിയുടെ ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി കേന്ദ്രമന്തിമാർ ലഡുവിതരണവും നിർവ്വഹിച്ചു

രാജ്യാതിർത്തി സംരക്ഷണത്തിൽ നൂതന സാങ്കേതികവിദ്യകളുടെ ഉറപ്പാക്കാൻ കേന്ദ്രം സദാ ശ്രമിക്കുന്നുണ്ടെന്നും സഹായം കേന്ദ്രമന്ത്രി പറഞ്ഞു ജമ്മുവിലെ അതിർത്തി മേഖലകളിലെ സുരക്ഷാ സ്ഥിതിഗതികൾ ശ്രീ

ജമ്മുകാശ്മീരിൽ നടക്കാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സംസ്ഥാനത്തെ എല്ലാ പാർട്ടികളോടും അദ്ദേഹം അഭ്യർത്ഥിച്ചു ന്യൂസ്ഡസ്ക് ആകാശവാണി

ന്യൂഡൽഹിയിൽ സ്മാർട്ട് ബോർഡർ മാനേജ്മെന്റ് എന്നീ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചാസമ്മേളനത്തിനിട്ടി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ൃ ്കേന്ദ്മന്ത്രി പാകിസ്ഥാനുമായുള്ള സംഭാഷണം സംബന്ധിച്ച് ഇന്ത്യയുടെ നയം വളരെ വൃക്തമാണ് പാകിസ്ഥാനിൽ പുതിയ്ക്കുവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം ഏറിവരുന്ന അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ ഇന്ത്യ സസൂക്ഷ്മം വീക്ഷിക്കുകയാണെന്നും ശ്രീ

മുക്താർ അഹ്മ്മദ് മാലിക് എന്ന സൈനികനാണ് കൊല്ലപ്പെട്ടത്

ദക്ഷിണകശ്മീരിലെ വിവിധ മേഖലകളിൽ തീവ്രവാദികൾക്കായി ശക്തമായ തെരച്ചിൽ ആരംഭിച്ചു

എസിനുളള നിലപാടുകൾ വൃക്തമാക്കുന്നതും ലക്ഷ്യമിട്ട് ആർ

എസ് സംഘടിപ്പിക്കുന്ന പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകും

ന്യൂഡൽഹിയിൽ ടൂറിസം ഇന്ത്യ മാർട്ട് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു വളരെവേഗം അദ്ദേഹം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

ശൂചിത്വ പദ്ധതിയായ സ്റ്യച്ഛതാ അഭിയാൻ വിനോദ സഞ്ചാര മേഖലയുടെ വളർച്ച ത്വരിതപ്പെടുന്നതിനു കാരണമായി എന്ന് മാർട്ട് ഉദ്ഘാടനം ചെയ്ത കേന്ദ്ര റെയിൽവേ മന്ത്രി പിയൂഷ് ഗോയൽ പറഞ്ഞു

ന്യൂസ് ഡസ്ക് ആകാശവാണി

ജെ പി കേന്ദ്രനിരീക്ഷക സംഘം ഗോവ ബി ജെ പി കോർ കമ്മിറ്റി അംഗങ്ങളുമായി നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ചർച്ച ചെയ്തു ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ചികിത്സയിലാണ് പരീക്കർ ദേശീയ സംഘടനാ സെക്രട്ടറിമാരായ രാംലാൽ ബി എൽ സന്ത്രാഫ് വിജയ് പുരാണിക് എന്നിവരടങ്ങുന്നതാണ് കേന്ദ്രസംഘം

ഉദ്യോഗസ്ഥ്ർക്ക് സ്ഥിരമായി പരിശീലനം ലഭ്യമാക്കേണ്ടതിന്റെ ആവശ്യകത ശ്രീ

ഗവൺമെന്റ് മികച്ച പിന്തുണയാണ് നല്കുന്നതെന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും മികച്ച പ്രവർത്തനമാണ് പ്രതീക്ഷിക്കുന്നതെന്നും വാർത്താവിതരണ വകുപ്പ് സെക്രട്ടറി അമിത് ഖരെ പറഞ്ഞു

പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി ഡോ

റിയോ ഒളിംപിക്സ് വെങ്കല മെഡൽ ജേതാവാണ് സാക്ഷിമാലിക്